ചൌരി ചൌര ശതാബ്ദിയാഘോഷം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

പി ദേശീയ അധ്യക്ഷൻ ജെ

ആഘോഷങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി ബിന്ദു

രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും പിന്നിൽ കർഷകരുണ്ട് ചൌരി ചൌരാ സംഭവത്തിലും കർഷകർ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ആറ് വർഷമായി കർഷകരുടെ സ്വാശ്രയത്വത്തിനായി സർക്കാർ നിരവധി നടപടികൾ എടുത്തു അതിന്റെ ഫലമായി കോവിഡ് മഹാമാരിക്കിടയിലും കാർഷിക മേഖല വളർച്ച നേടി കർഷകരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം

ഇത് കാർഷിക മേഖലയ്ക്ക് കരുത്തുപകരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചൌരിചൌരാ രക്തസാക്ഷികൾക്ക് ചരിത്രത്തിൽ വേണ്ടത്ര സ്ഥാനം ലഭിക്കാത്തത് നിർഭാഗ്യകരമാണ് ചൌരിചൌരായിലെ അഗ്നി ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്കാണ് പടർന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് ഉത്തർപ്രദേശിലുടനീളം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നത് ആർക്കും തടയാനാവില്ല വൃാജ പ്രചരണങ്ങളല്ല പുരോഗതിയും വികസനവുമാണ് ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുകയെന്നും ശ്രീ അമിത് ഷാ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

ഐ

എസ് ഐ

എം കെ

എം സി

ആർബിട്രേഷൻ കൺസീലിയേഷൻ ബിൽ മന്ത്രി രവിശങ്കർ പ്രസാദ് സഭയിൽ അവതരിപ്പിച്ചു

രാജ്യസഭയിൽ ചോദ്യത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഐ

കളിലെയും എൻ ഐ

കളിലെയും ഡയറക്ടർമാർ ഉൾപ്പെട്ട കർമ്മ സമിതി രൂപീകരിച്ചിട്ടുണ്ട്

ഉഭയകക്ഷി വികസനം വ്യാപാരം ആരോഗ്യം പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു

ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും

ബി ഐ ഗവർണ്ണർ ് ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സാമ്പത്തിക്നയ സമിതിയോഗം നാളെ സമാപിക്കും

രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം പൊതുവെ കുറയുകയാണെന്ന് കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും സ്ഥിതി ഗുരുതരമാണെന്ന് ആരോഗ്യസെക്രട്ടറി പറഞ്ഞു

പി ദേശീയ അധ്യക്ഷൻ ജെ

അഴിമതിയിൽ എൽ

എഫും

ഡി

കേരളത്തിൽ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ നദ്ദ പറഞ്ഞു നേരത്തെ ബി ജെ

സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരുക്കങ്ങൾ യോഗം അവലോകനം ചെയ്തു

തിരുവനന്തപുരത്ത് വ്യവസായ സംരംഭകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം ടൂറിസം മേഖലയ്ക്ക് വ്യവസായ പദവി അനുവദിക്കണമെന്ന യോഗത്തിലുയർന്ന ആവശ്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വിവിധ വകുപ്പുകളിലെ കോവിഡ് മുന്നണി പോരാളികൾക്കാണ് ഇന്നു മുതൽ വാക്സിൻ നൽകുന്നത്

ഗുജറാത്തിൽ ബി ജെ

സാംസ്കാരിക സംഗീതരംഗത്ത് ഭീം സെൻ ജോഷി ലോകശ്രദ്ധ നേടിയിരുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു